സ്വാഗതം ചെയ്ത് ഇന്ത്യ കൊറിയ്ട്ടൻ ഉപദ്വീപിൽ സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള് ശ്രമങ്ങൾക്ക് എല്ലായിപ്പോഴും പിൻതുണ്ട്

ജമ്മുകാശ്മീരിൽ വൃത്യസ്ത ഭീകരാക്രമണങ്ങളിൽ രണ്ട് പോലീസുകാർ കൊല്ലപ്പെട്ടു

റഷ്യൻ ബോക്സിംഗ് ടൂർണ്ണമെന്റിൽ ഇന്ത്യയുടെ സവീതി ബൂറയ്ക്ക് സ്വർണ്ണം

സംഭാക്ഷണങ്ങളിലൂടെയും നയതന്ത്രത്തിലൂടെയും കൊറിയൻ ഉപദ്വീപിൽ സമാധാനം പുനഃസ്ഥാപിക്കുറിന്റുള്ള എല്ലാ ശ്രമങ്ങൾക്കും ഇന്ത്യ എപ്പോഴും പിൻതുണ നൽക്ടിയിരുന്നതായും വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ വ്യക്തമാക്കി

കൊറിയൻ ഉപദ്വീപിന്റെ സമ്പൂർണ്ണ ആണവ നിരായുധീകരണത്തിന് തയ്യാറാണെന്ന ഉത്തരകൊറിയയുടെ ഉറപ്പിന്മേലാണ് അമേരിക്ക നിലപാട് വ്യക്തമാക്കിയത് ലോകം ഉറ്റുനോക്കിയ ഡൊണാൾഡ് ട്രംപ് കിം ജോങ് ഉന്ന് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഇറക്കിയ സംയുക്ത പ്രസ്താവനയിലാണ് ഇക്കാരൃം അറിയിച്ചത് വിശദാംശങ്ങളുമായി നരേന്ദ്രമോഹൻ

കൂടിക്കാഴ്ചയ്ക്ക ശേഷം നടന്ന വാർത്താ സമ്മേളനത്തിൽ ഉത്തരകൊറിയൻ നേതാവുമായി പ്രത്യേക ബന്ധം സ്ഥാപിക്കാൻ തനിക്ക് കഴിഞ്ഞതായി ട്രംപ് പറഞ്ഞു പ്രതീക്ഷിച്ചതിനപ്പുറം വിജയകരമായിരുന്നു ചർച്ചകളെന്നും അദ്ദേഹം വൃക്തമാക്കി ആണവനിരായുധീകരണം സംബന്ധിച്ച് കരാറിൽ ഏർപ്പെട്ടോയ്യെന്നു മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് കരാറിനായുള്ളൂട്ട് പ്രപ്പ്വർത്തനങ്ങൾ ഉടൻ ആരംഭിക്കുമെന്ന് ട്രംപ് മറ്റുപ്പട്ടി നൽകി

നിർണായകമായ മാറ്റത്തിന് ലോകം സാക്ഷ്യം വഹിക്കുമെന്ന് കിം ജോങ് ഉൻ പറഞ്ഞു സിംഗപൂരിലെ സന്റോസ ദ്വീപിലെ കാപ്പെല്ല ഹോട്ടലിലാണ് ട്രംപ് കിം കൂടിക്കാഴ്ച നടന്നത്

ചരിത്രത്തിൽ ആദ്യമായാണ് ഭരണത്തിലിരിക്കുന്ന അമേരിക്കൻ പ്രസിഡന്റും ഉത്തരകൊറിയൻ ഭരണ മേധാവിയും തമ്മിൽ കാണുന്നത്

കൂടിക്കാഴ്ച വിജയകരമാകട്ടേയെന്നും പൂർണ്ണ ആണവനിരായുധീകരണത്തിലൂടെ ഇരു കൊറിയകളും അമേരിക്കയും തമ്മിൽ സമാധാനത്തിലൂന്നിയ പുതിയ ബന്ധം സ്ഥാപിക്കാൻ കഴിയട്ടെയെന്നും ദക്ഷിണ കൊറിയൻ പ്രസിഡന്റ് മൂൺ ജെ ഇൻ പ്രത്യാശ പ്രകടിപ്പിച്ചു കിമ്മുമായുള്ള മൂണിന്റെ കൂടിക്കാഴ്ചകളാണ് സിംഗപ്പൂർ ഉച്ചകോടിയ്ക്ക് വഴിയൊരുക്കിയത്

പ്രശ്നങ്ങൾ പൂർണ്ണമായും പരിഹരിക്കണമെങ്കിൽ ആണവ നിരായുധീകരണം നടപ്പിലാക്കണമെന്ന് ചൈന്ദ്രീസ് വിദേശകാര്യമന്ത്രി വാങ്യീ വാർത്താലേഖകരോട് പറഞ്ഞു അതേസമയം സുരക്ഷ സംബന്ധിച്ച ഉത്തരകൊറിയയുടെ ആശ്രങ്കകൾ അകറ്റാൻ ഉപദ്വീപിൽ സമാധാനം ഉറപ്പുവരുത്തണമെന്നും അദ്ദേഹം പറഞ്ഞു

എസ് പ്രവർത്തകൻ നൽകിയ അപകീർത്തിക്കേസിൽ കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിക്കെതിരെ മഹാരാഷ്ട്രയിലെ ഒരു കോടതി കുറ്റം ചുമത്തി

എന്നാൽ താൻ കുറ്റക്കാരനല്ലെന്ന് ശ്രീ രാഹുൽഗാന്ധി താനെ കോടതിയിൽ അറിയിച്ചു

എസിനെതിരെ അപകീർത്തികരമായ പ്രസ്താവന നടത്തിയെന്ന് ആരോപിച്ചാണ് ആർ

എസ് പ്രവർത്തകൻ കോടതിയെ സമീപിച്ചത്

ചികിത്സയോട് അദ്ദേഹ്ലാറ്റ് പ്രതികരിക്കുന്നതായും ആന്റിബയോട്ടിക് മരുന്നുകൾ കുത്തിരൂപയ്പിലൂടെ അദ്ദേഹത്തിന് നൽകി വരുന്നതായും പ്രസ്താവനിയിൽ വ്യക്തമാക്കി ശരീരത്തിലെ പ്രധാന അവയവങ്ങളുടെ ്രപ്പവർത്തനം തൃപ്തികരമാണെന്നും അണുബാധ നിയന്ത്രണത്തിൽ ആകുന്നതുവരെ അദ്ദേഹം ആശുപത്രിയിൽ തുട്ട്ത്മെന്നും അധികൃതർ അറിയിച്ചു

ഇന്നലെ പ്രധാനമന്ത്രി നരേന്ദ്ര മോദി കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി ബിജെപി അധ്യക്ഷൻ അമിത്ഷാ എന്നിവർ ശ്രീ വാജ്പേയിയെ സന്ദർശിച്ചു

പോലീസ് സേനയുടെ നവീകരണത്തിനായി പ്രവർത്തിക്കുന്ന ബ്യൂറോ ഓഫ് പോലീസ് റിസെർച്ച് ആന്റ് ഡവലപ്പ്മെന്റിൽ നടന്ന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം

ബോർഡിന്റെ ചെലവുകൾ നിരക്ക് വർധനയിലൂടെ മാത്രമേ കണ്ടെത്താൻ സാധിക്കൂ എന്നും അദ്ദേഹം പറഞ്ഞു അതിരപ്പള്ളി പദ്ധതി സംബന്ധിച്ച് അഭിപ്രായ സമന്വയം ഉണ്ടാക്കിയ ശേഷമേ കൂടുതൽ ആലോചനകളിലേക്ക് പോകൂ എന്നും ശ്രീ എം എം മണി വ്യക്തമാക്കി

ഇതേ കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ട്രേറ്റ് ചിദംബരത്തെ കഴിഞ്ഞയാഴ്ച ചോദ്യം ചെയ്തിരുന്നു അന്വേഷണ ഉദ്യോഗസ്ഥൻ ഇന്ന് ചിദംബരത്തിന്റെ മൊഴി രേഖപ്പെടുത്തുമെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചു

പരശുറാം വാഗ്മോർ എന്ന ആളെയാണ് പ്രത്യേക അന്വേഷണ സംഘം മഹാരാഷ്ട്രയിൽ നിന്ന് അറസ്റ്റ് ചെയ്തത്

കുട്ടികളെ തട്ടിക്കൊണ്ടു പോകാൻ വന്നവരെന്ന് ക്രു്തിയാണ് കഴിഞ്ഞ ദിവസം രണ്ടു പേരെ നാട്ടുകാർ മർദ്ദിച്ച് കൊന്നത്

കുട്ടികളെ തട്ടിക്കൊണ്ടു പോകുന്നതുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിലൂടെ തെറ്റായ വാർത്തകൾ പ്രചരിപ്പിച്ചതിന് അഞ്ചു പേരെയും പോലീല് അറസ്റ്റ് ചെയ്തു

ഇന്ത്യൻ വനിതകളിൽ സാവീതി ബൂറാ മാത്രമാണ് ഫൈനലിൽ കടന്നിരുന്നത് റഷ്യയുടെ അന്നാ അൻഫിനോജനോവവെയാണ് സവീതി പരാജയപ്പെടുത്തിയത്

എ ഗവൺമെന്റ് നാല് വർഷം പൂർത്തിയാക്കിയതുമായി ബന്ധപ്പെട്ട് ആകാശവാണിയുടെ ന്യൂസ് സർവ്വീസ് ഡിവിഷൻ മോദി ഗവൺമെന്റിന്റ നാല് വർഷങ്ങൾ എന്ന പ്രത്യേക പരമ്പര പ്രക്ഷേപണം ചെയ്യുന്നു ഗവൺമെന്റിന് കീഴിലുള്ള വിവിധ മന്ത്രാലയങ്ങളുടെ നേട്ടങ്ങൾ എടുത്തുകാട്ടുന്നതാണ് പരിപാടി പരിപാടിയുടെ ഭാഗമായി ഇന്ന് കേന്ദ്ര സഹമന്ത്രി ഡോ

ഗോൾഡ് ചാനലിൽ അഭിമുഖത്തിന്റെ പൂർണ്ണ രൂപം പ്രക്ഷേപണം ചെയ്യും